രാജ്യത്തെ മത്സൃമേഖലയുടെ വികസനം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടക്കം കുറിച്ചു

വെങ്കയ്യ നായിഡു വിലയിരുത്തി

മത്സ്യമേഖലയെ നവീകരിക്കുന്ന പദ്ധതി സ്വാശ്രയ ഭാരതം കെട്ടിപ്പിടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മത്സ്യമേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലഭ്യത കുറവ് പരിഹരിക്കുന്നതിനോടൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾക്കും പദ്ധതി വഴിതുറക്കും

അംബാല വ്യോമസേന താവളത്തിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ് നാഥ് സിങ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലെ എന്നിവർ മുഖ്യാതിഥികളായി ആദ്യ ബാച്ചിലെ അഞ്ച് വിമാന ങ്ങളാണ് ഇന്ന് ഓദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്

സമാധാനത്തിനു മുൻതൂക്കം നൽകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഫ്രാൻസും സാംസ്കാരിക മേഖല ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണുള്ളത്ത് ്പാക്കിസ്ഥാനുമായുള്ള യുദ്ധങ്ങളിൽ ഫ്രഞ്ച് സാങ്കേതിക ് സ്റ്റായ്ം ഇന്ത്യക്ക് തുണയായ തായും അദ്ദേഹം പറഞ്ഞു

വെങ്കയ്യ നായിഡു വിലയിരുത്തി

സമ്മേളനവുമായി ബന്ധപെട്ട് ആഭ്യന്തര ആരോഗൃ മന്ത്രാലയ ങ്ങൾ നൽകിയിട്ടുള്ള നിർദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് ഉപരാഷ്ട്രപതി പാർലമെന്റ് സെക്രട്ടറിയേറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

വിദേശകാര്യ മന്ത്രി എസ്

വിശദാംശങ്ങളുമായി ജോസ്ന

ഇന്ത്യയും റഷ്യയും ത്മീലുള്ള തന്ത്രപ്രധാനമായ ബന്ധം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചയെന്ന് ശ്രീ ജയ്ശങ്കർ ട്വീറ്റ് ചെയ്തു അന്താരാഷ്ട്ര സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റഷ്യയുടെ നിലപാടിനെയും ഇന്ത്യ അംഗീകരിക്കുന്നതായി ഇന്ത്യൻ വിദേശ കാര്യമന്ത്രി പറഞ്ഞു കിർഗിസ് റിപ്പബ്ലിക് താജിക് എന്നിവിട ങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി

ആത്മന്റിർഭിർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിതി ആയോഗ് സ്റ്റ്ലൂട്ടിപ്പിച്ച വിർചൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് വിശാല ബെഞ്ചി ലേക്ക് വിടുന്നതായി ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഉത്തരവിട്ടു

ഇതോടെ ഏഴ് ലൈനുകളിലാണ് നിലവിൽ മെട്രോ സർവ്വീസ് നടത്തുന്നത് കോവിഡ് മഹാമാരി മൂലം അഞ്ച് മാസമായി പ്രവർത്തനം നിലച്ചിരുന്ന മെട്രോ ഈ തിങ്കളാഴ്ചയാണ് പ്രവർത്തനം പുനഃരാരംഭിച്ചത്

വീടൊരുക്കാം വീണ്ടെടുക്കാം വിശ്വശാന്തിയേകാം എന്ന സന്ദേശം വിളംബരം ചെയ്ത് വീടുകൾ കേന്ദ്രീകരിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നു വൈകുന്നേരം ഓൺഐബ്രിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡ്ടൂ ഗ്ലവ്ർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ജന്മാഷ്ടമി സന്ദ്രേശം നൽകും

സ്വെറ്റാന് പിറോൺകോവയെ പരാജയപ്പെടുത്തി യാണ് അമേരിക്കൻ താരം സെമി സൈനലിൽ എത്തിയത്

ചെന്നൈ ഡൽഹി ചെന്നൈ ചപ്ര തിരുച്ചിറപ്പള്ളി ഹൌറ ബംഗളുരു ഗോഹട്ടി എന്നീ റൂട്ടുകളിലാണ് പുതിയ ട്രെയിനുകൾ സർവ്വീസ് നടത്തുക ഈ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് ആരംഭിച്ചു

പ്രളയ സാധ്യത മുൻനിർത്തി മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർക്കും പൊതുജനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശം നൽകി